കർഷക ക്ഷേമത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അർപ്പണബോധം ഉൾക്കൊണ്ടതാണ് ബജറ്റെന്നും അദ്ദേഹം പ്രസ്താവനയിൽ പറഞ്ഞു കോവിഡ്കാല പ്രതിസന്ധിയിൽ ബജറ്റ് തയ്യാറാക്കൽ വളരെ സങ്കീർണമായ പ്രക്രിയയാണെന്നും എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മാർഗ നിർദ്ദേശത്തിൽ തയ്യാറാക്കിയ ബജറ്റ് സ്വയംപര്യാപ്ത ഭാരത സൃഷ്ടിക്ക് പൂർണത നൽകുമെന്നും അമിത്ഷാ വിലയിരുത്തി ദ്ദേ ആരോഗ്യ മേഖലക്ക് പ്രത്യേക ഊന്നൽ നൽകി ധനമന്ത്രി നിർമല സീതാരാമൻ അവതരിപ്പിച്ച ബജറ്റിനെ ആരോഗ്യ മന്ത്രി ഡോക്ടർ ഹർഷ വർദ്ധൻ പ്രശംസിച്ചു ആത്മനിർഭർ ഭാരത് പദ്ധതിയുടെ ആറ് മുഖ്യ സ്തംഭങ്ങളിൽ ആരോഗ്യത്തിനും ക്ഷേമത്തിനും ആദ്യ സ്ഥാനങ്ങൾ നൽകിയിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു

ദര നവ ഉദാരവത്കരണ പ്രക്രിയകൾ കൂടുതൽ ശക്തിയോടെ നടപ്പാക്കുമെന്ന എൻ

എ പ്രഖ്യാപനത്തിന്റെ പ്രതിഫലനമാണ് കേന്ദ്ര ബജറ്റെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിലയിരുത്തി എല്ലാ മേഖലകളിൽ നിന്നും ഗവൺമെന്റ് പിൻവാങ്ങുകയാണ് ഇൻഷൂറൻസ് മേഖലയിൽ വിദേശ നിക്ഷേപം വർദ്ധിപ്പിക്കാനും പൊതു സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരിക്കാനും രാജ്യത്തെ കച്ചവട താല്പര്യങ്ങൾക്ക് വിട്ടു നൽകാനും ലക്ഷ്യമിടുന്നതാണ് ബജറ്റെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി കോവിഡിൽ വരുമാനം നഷ്ടപ്പെട്ടവർക്ക് ആശ്വാസം നൽകുന്നതൊന്നും ബജറ്റിൽ ഇല്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ഫാം സെസ് എന്ന പേരിൽ പെട്രോളിനും ഡീസലിനും ഏർപ്പെടുത്തിയ ഇന്ധന സെസ് വിലക്കയറ്റം വർദ്ധിപ്പിക്കാനും പൊതുജനങ്ങളെ കൂടുതൽ സാമ്പത്തിക ബുദ്ധിമുട്ടിലേക്ക് തള്ളിവിടാനും മാത്രമേ കേന്ദ്രബജറ്റ് വഴിയൊരുക്കൂവെന്ന് മുഖ്യമന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു ദേദ ഇന്ധന വിലക്കയറ്റത്തിന് കേന്ദ്രബജറ്റിൽ പരിഹാരം പ്രതീക്ഷിച്ചെങ്കിലും അതുണ്ടായില്ലെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു എക്സൈസ് നികുതി കുറച്ചെങ്കിലും സെസ് ഏർപ്പെടുത്തിയതോടെ വില ഉയർന്ന് നിൽക്കുകയാണ് ഇത് വലിയ ജനദ്രോഹമാണെന്ന് ഉമ്മൻചാണ്ടി കുറ്റപ്പെടുത്തി കോവിഡ് വാക്സിൻ സൌജന്യമായി ലഭിക്കുമെന്ന പ്രതീക്ഷയും അസ്ഥാനത്തായി പൊതുമേഖലാ സ്ഥാപനങ്ങളെ വിറ്റഴിക്കുന്ന നയം ഊർജ്ജിതമാക്കിയതും ജനവിരുദ്ധ നടപടിയാണെന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞു ദേദ കേന്ദ്ര ബജറ്റ് ചെറുകിട വ്യവസായ മേഖലക്ക് പുത്തൻ ഉണർവ് നൽകുമെന്ന് നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് അഭിപ്രായപ്പെട്ടു ടെക്സ്റ്റൈൽ വ്യവസായത്തിന്റെ അഭിവൃദ്ധിക്ക് രാജ്യത്ത് ഏഴ് മെഗാ ടെക്സ്റ്റൈൽ പാർക്കുകൾ അനുവദിച്ചത് മേഖലയെ കൂടുതൽ സമ്പുഷ്ടമാക്കുമെന്ന് ചേംബർ വിലയിരുത്തി ദേദ കോവിഡ് രണ്ടാം ഘട്ടത്തിൽ കേരളം പരാജയപ്പെട്ടിട്ടില്ലെന്ന് മന്ത്രി കെ

ഇപ്പോഴും സംസ്ഥാനത്ത് കോവിഡ് മരണനിരക്ക് കുറവു തന്നെയാണ് കൃത്യമായ പരിശോധനകളും റിപ്പോർട്ടുകളും ഇപ്പോഴും തുടരുന്നുണ്ട് വലിയൊരു വ്യാപനത്തിലേക്ക് നീങ്ങാതെ കോവിഡിനെ പിടിച്ചുനിർത്താൻ ശ്രമം ശക്തമാണെന്നും അതിന് ജനങ്ങൾ സ്വയം പ്രതിരോധം തീർക്കണമെന്നും മന്ത്രി കണ്ണൂർ മാങ്ങാട്ടുപറമ്പിൽ പറഞ്ഞു

കെ നായനാർ സ്മാരക ആശുപത്രിയിൽ പ്രാരംഭ ഇടപെടൽ കേന്ദ്രം കെട്ടിടവും വന്ധ്യതാ ചികിത്സാ കേന്ദ്രവും മറ്റ് പദ്ധതികളും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി

മറ്റ് ജില്ലകളിൽ ഇതിൽ താഴെയാണ് രോഗബാധിതരുടെ എണ്ണം

ഹോട്ടലുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും കർശനമായ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതാണ്

റവന്യൂ പൊലീസ് ആരോഗ്യ തദ്ദേശ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി നിയോഗിച്ച സംയുക്ത സ്ക്വാഡ് ദിവസവും പരിശോധന നടത്തി പ്രോട്ടോക്കോൾ പാലനത്തിന് ആവശ്യമായ നടപടികൾ കൈക്കൊള്ളണമെന്നും ജില്ലാ കലക്ടർ ആവശ്യപ്പെട്ടു ദേദ തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളജ് നെഞ്ചാശുപത്രിയിൽ കോവിഡ് വാക്സിൻ വിതരണത്തിന് പുതിയ കേന്ദ്രം പ്രവർത്തനം തുടങ്ങി മെഡിക്കൽ കോളജ് ജീവനക്കാർക്ക് വാക്സിൻ വേഗത്തിൽ ലഭ്യമാക്കാനാണ് നടപടി ദര കോവിഡ് പശ്ചാത്തലത്തിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ കർശന കോവിഡ് നിയന്ത്രണങ്ങൾ പാലിച്ചായിരിക്കുമെന്ന് സംസ്ഥാന മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ അറിയിച്ചു തിരുവനനന്തപുരത്ത് രാഷ്ട്രീയകക്ഷി നേതാക്കളുമായി നടത്തിയ ചർച്ചയിലാണ് മീണ ഇക്കാര്യം വ്യക്തമാക്കിയത് കൂടുതൽ വിവരങ്ങൾ നൽകുന്നത് അനുഷ ആത്മപ്രകാശ് ദേദ പത്രികാ സമർപ്പണത്തിന് സ്ഥാനാർത്ഥിക്കൊപ്പം രണ്ടു പേരെ മാത്രമേ അനുവദിക്കൂ പരമാവധി അഞ്ച് പ്രചാരണ വാഹനങ്ങൾക്കേ അനുമതി നൽകൂവെന്നും അദ്ദേഹം പറഞ്ഞു ഓൺലൈനായി പത്രിക സമർപ്പിക്കാനും സൌകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് എൺപത് വയസ്സ് കഴിഞ്ഞവർ ഭിന്നശേഷിക്കാർ കോവിഡ് രോഗികൾ തുടങ്ങിയവർക്ക് തപാൽ വോട്ട് സൌകര്യം നൽകും

തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സംഘം സംസ്ഥാനത്തെത്തുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ രാഷ്ട്രീയ പാർട്ടികളുമായി ചർച്ച ചെയ്യുമെന്നും ടിക്കാറാം മീണ പറഞ്ഞു

സംസ്ഥാനത്തിന്റെ ഭാവി വീക്ഷണങ്ങൾക്ക് രൂപം നൽകാൻ സംസ്ഥാന ആസൂത്രണ ബോർഡ് സംഘടിപ്പിച്ച കേരള ലുക്ക്സ് എഹെഡ് അന്തർ ദേശീയ കോൺഫറൻസ് ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി പൌരന്മാരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ആധുനിക സമ്പദ് വ്യവസ്ഥയായി സംസ്ഥാനത്തെ മാറ്റാൻ ലോകരാജ്യങ്ങളുടെ മികച്ച ആശയങ്ങളും മാതൃകകളും ഉൾക്കൊള്ളണമെന്ന് മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു കോൺഫറൻസും വിദഗ്ദ്ധർ പങ്കെടുക്കുന്ന സംവാദവും നാളെ സമാപിക്കും ലോകാരോഗ്യ സംഘടന ചീഫ് സയന്റിസ്റ് ഡോക്ടർ സൌമ്യ സ്വാമിനാഥൻ കൊളംബിയ സർവകലാശാല പ്രൊഫസർ ജോസഫ് സ്റ്റിഗ്ലിറ്റ്സ് തുടങ്ങിയവർ മുഖ്യപ്രഭാഷണം നടത്തി മന്ത്രിമാർ ആസൂത്രണ ബോർഡിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ ചീഫ് സെക്രട്ടറി തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു ദേദ മുല്ലപ്പെരിയാർ ഡാം വൈദ്യുതി പുനസ്ഥാപന പദ്ധതി മന്ത്രി എം എം മണി ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തിൽ താൽക്കാലികമായി വിച്ഛേദിച്ച ഓവർഹെഡ് ലൈനിന് പകരം ഭൂഗർഭ കേബിളുപയോഗിച്ച് ഡാമിലും പരിസര പ്രദേശങ്ങളിലും വൈദ്യുതി എത്തിക്കുന്ന പദ്ധതിയാണിത്

ഡാമിലെ വൈദ്യുതി പുനസ്ഥാപിച്ചതിലൂടെ കേരള തമിഴ്നാട് ബന്ധം കൂടുതൽ ശക്തമാക്കാനാകുമെന്ന് സ്വിച്ച്ഓൺ കർമ്മം നിർവഹിച്ചുകൊണ്ട് മന്ത്രി പറഞ്ഞു ഇടുക്കിയിലെ രണ്ടാം വൈദ്യുതി നിലയം വേഗത്തിൽ യാഥാർത്ഥ്യമാക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നതെന്ന് ഉദ്ഘാടന ചടങ്ങിൽ മന്ത്രി അറിയിച്ചു ദര വയനാട് ജില്ലയിൽ കുട്ടികളിലെ വൈകല്യ നിർണയ പരിചരണ കേന്ദ്രത്തിന്റെ പുതിയ കെട്ടിടം മന്ത്രി കെ

തുടക്കത്തിൽ തന്നെ കുട്ടികളിലെ ശാരീരിക മാനസിക പ്രശ്നങ്ങൾ കണ്ടെത്തി പരിഹാരം കാണാനാവശ്യമായ സേവനങ്ങൾ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുമെന്ന് മന്ത്രി പറഞ്ഞു ദേദ ഇൻഡോ അറബ് കോൺഫെഡറേഷൻ കൌൺസിൽ സംഘടിപ്പിച്ച ആഗോള പ്രവാസി സംഗമവും അവാർഡ്ദാനവും കോഴിക്കോട്ട് നടന്നു മിസോറം ഗവർണർ പി എസ് ശ്രീധരൻപിള്ള സംഗമം ഉദ്ഘാടനം ചെയ്തു പത്മശ്രീ പുരസ്കാരത്തിന് അർഹനായ അലി മണിക്ഫാനെ ചടങ്ങിൽ ആദരിച്ചു ദേദ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നയിക്കുന്ന ഐശ്വര്യ കേരള യാത്ര ഇന്നും കണ്ണൂർ ജില്ലയിൽ പര്യടനം തുടരും രാവിലെ ചക്കരക്കല്ലിൽ നിന്നാരംഭിക്കുന്ന യാത്ര വൈകീട്ട് തളിപ്പറമ്പിൽ സമാപിക്കും കണ്ണൂർ വികസനം സംബന്ധിച്ച ചർച്ചയിലും രാവിലെ ചെന്നിത്തല പങ്കെടുക്കും ഇടത് ഭരണത്തിനെതിരായ വിധിയെഴുത്തായിരിക്കും അടുത്ത തിരഞ്ഞെടുപ്പെന്ന് ഐശ്വര്യ കേരളയാത്രക്ക് കണ്ണൂരിൽ നൽകിയ സ്വീകരണ പരിപാടിയിൽ ചെന്നിത്തല പറഞ്ഞു

ഡി

എസ് സി പരീക്ഷ എഴുതി ജോലിക്ക് കാത്തിരിക്കുന്നവരെ ഗവൺമെന്റ് നിരാശയിലേക്ക് തള്ളിവിടുകയാണെന്നും ചെന്നിത്തല കുറ്റപ്പെടുത്തി

ഡി എഫ് ഗവൺമെന്റ് അധികാരത്തിൽ വരുമെന്ന് എ

സിയിൽ ലീഡേഴ്സ് മീറ്റ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു താരിഖ് അൻവർ

എസ് എൽ ഫുട്ബോളിൽ ജംഷഡ്പൂർ എഫ് സി മറുപടിയില്ലാത്ത ഒരു ഗോളിന് ഒഡീഷയെ തോൽപ്പിച്ചു

രാത്രി ഏഴരയ്ക്ക് ഗോവയിലാണ് മത്സരം

എം സംസ്ഥാന സെക്രട്ടറിയേറ്റ് യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും